തമിഴ്നാട് തീരംതൊട്ട നിവാർ ചുഴലിക്കാറ്റിൽ മൂന്ന് മരണം

മൂന്നാമത് ആഗോള പുനരുപയോഗഉത്ർജനിക്ഷേപക സംഗമം ആർ ഇ ഇൻവെസ്റ്റ് ഉദ്ഘാടന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

പുനരുപയോഗ ഊർജോൽപാദന ശേഷിയും അതിന്റെ ശൃംഖലയും വർധിപ്പിച്ച് എല്ലാ പൌരന്മാർക്കും വൈദ്യുതി സാധ്യമാക്കുകയെന്നതാണ് ലക്ഷ്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജശേഷി രണ്ടര ഇരട്ടിയായി വർധിച്ചതായും പ്രധാനമന്ത്രിപറഞ്ഞു ഇപ്പോഴുള്ള പുനരുപയോഗ ഊർജ ശേഷി പര്യാപ്തമല്ലാതെ വന്നാൽ നിക്ഷേപം നടത്തി ചെലവ് കുറയ്ക്കാനുള്ള വഴിയൊരുക്കും നല്ല പരിസ്ഥിതി സൌഹൃദ പദ്ധതികൾ ഭദ്രമായ സാമ്പത്തിക ശേഷിയിലേക്ക് നയിക്കുമെന്നത് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

ഉത്തരവാദിത്തമായാണ് ഊർജപര്യാപ്തത കൈവരിക്കുകയെന്നതാണ് ഇത്തരം പദ്ധതികൾകൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

ന്യൂസ്ഡസ്ക് ആകാശവാണി

പുതിയ കാർഷിക നിയമങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഭാവിയിൽ മാറ്റങ്ങൾ കൊണ്ടു വരാൻ ലക്ഷ്യമിട്ടുള്ളവയാണെന്നും മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞു

അടുത്ത മാസം ദ ന് കർഷകരെ ചർച്ചക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ചർച്ച നല്ല ഫലം ചെയ്യുമെന്നും ശ്രീ തോമർ പറഞ്ഞു

്കോവിഡിനെ നേരിടുന്നതിൽ ഇന്ത്യൻ എംബസിക്കു ഇന്ത്യൻ സമൂഹം നൽകിയ പിന്തുണയെ അദ്ദേഹം പ്രശംസിച്ചു

എ തല യോഗത്തിന് കൊളംബോയിൽ ഇന്ന് തുടക്കം

ശ്രീലങ്കൻ പ്രതിരോധ സെക്രട്ടറി കമൽ ഗുണരത്നെ മാലി പ്രതിരോധ മന്ത്രി മരിയ ദിതി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും

ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു മറഡോണയുടെ മരണത്തെ തുടർന്ന് അർജന്റീനയിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്

കോവിഡ് മരുന്ന് ഉടൻതന്നെ ലഭ്യമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു

നിലവിലെ യാത്രക്കാരുടെ എണ്ണം കോവിഡിന് മുമ്പുള്ള കണക്കിന് തുല്യമാണെന്നും അദ്ദേഹം അറിയിച്ചു

പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുകയും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തു വ്യാപകമായ കൃഷിനാശം ഉണ്ടായി പലയിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു

തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായും പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമിയുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി

വിരാട് കോഹ്ലിയാണ് ക്യാപ്റ്റൻ പരിക്ക് കാരണം രോഹിത് ശർമ്മ ഇന്നത്തെ മത്സരങ്ങൾ കളിക്കില്ല

രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ